സൈപ്രസിലെ ഇന്ത്യൻ വംശജരോട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആഹ്വാന്ം ചെയ്തു

പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കി

പ്രവർത്തന തയ്യാറെടുപ്പുകളും നുഴഞ്ഞുകയറ്റം തടയുന്നതിനുള്ള ചട്ടക്കൂടിനെക്കുറിച്ചും സൈനിക ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു

അതിർത്തി ജില്ലയായ കുപ്വാരയിലെ മുന്നിലുള്ള മേഖലകളും പ്രതിരോധമന്ത്രി സന്ദർശിച്ചതായി കരസേനാ ഉദ്യോഗസ്ഥർ പറഞ്ഞു

നിയന്ത്രണരേഖയിലൂടെയുള്ള ഐസ്യത്തിന്റെ മുഴുവൻ സമയ സൂക്ഷ്മ കാവലിനെയും സേര്പന് ഒവെശിഷ്ട്യത്തെയും മന്ത്രി അഭിനന്ദിച്ചു ശത്രു ശക്തികളുടെ ആക്രമണങ്ങളെ പരാജയപ്പെടുത്താൻ ജീഗരൂകരായിരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി പ്രതിരോധമന്ത്രി ്പിന്നീട് ഗവർണ്ണർ സത്യപാൽ മാലിക്കിനെ സന്ദർശിച്ച് സംസ്ഥാനത്തിന്റെ സുരക്ഷാ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു

നവ ഇന്ത്യ ആത്മവിശ്വാസമുള്ളതും വേഗത്തിൽ വളരുന്നതുമാണെന്ന് സൈപ്രസിന്റെ തലസ്ഥാനമായ നിക്കോസിയയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു കൊണ്ട് ശ്രീ

ലോകത്തിലെ വേഗത്തിൽ വളരുന്ന പ്രമുഖ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന മേക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ സ്റ്റാർട്ട് അപ്പ് ഇന്ത്യ ഉജ്ജല യോജന തുടങ്ങിയ പദ്ധതികളെക്കുറിച്ചും രാഷ്ട്രപതി സംസാരിച്ചു ഇന്ത്യയും സൈപ്രസും പുരാതന സംസ്ക്കാരങ്ങളാണെന്നും സാംസ്ക്കാരിക വൈവിധ്യം പോലുള്ള നിരവധി വിശേഷണങ്ങൾ ഇരു രാജ്യങ്ങളും പങ്ക് വെയ്ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു മഹാത്മ ഗാന്ധി രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയ ഇന്ത്യൻ നേതാക്കളെ സൈപ്രസിൽ വളരെയധികം ബഹുമാന്ദിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും സ്വാഭാവിക സുഹൃത്തുക്കുളാണെന്നും രാഷ്ട്രപതി പറഞ്ഞു

തുടർന്ന് പ്രതിനിധിസംഘതല ചർച്ചകളും ഉഭയകക്ഷി കരാറുകളുട്ട് ഒപ്പുവെയ്ക്കലും നടക്കും സൈപ്രസ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നാളെ രാഷ്ട്രപതി ബൾഗേരിയയിലേയ്ക്ക് യാത്ര തിരിക്കും

ഇന്ത്യൻ അതിർത്തിരക്ഷാസേന ഡയറക്ടർ ജനറൽ കെ

ശർമ്മയും ബംഗ്ലാദേശ് അതിർത്തി സേനാതലവൻ ഷഫീനുൾ ഇസ്ലാമുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നലകുന്നത് അതിർത്തിയിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് കന്നുകാലികടത്ത് ആയുധകടത്ത് എന്നിവ തടയാനുള്ള നടപടികൾ ചർച്ച ചെയ്തു

കേരളത്തിന്റെ കരുത്ത് ഇന്ത്യൻ ടീമിന് തുണയായി

ചിത്രയും വി

ഗവൺമെന്റിന്റെ ഊർജ്ജിത നടപടിയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനായി ഇന്ത്യ മലേഷ്യ ഇന്തോനേഷ്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്കൂർ ഇപ്പോൾ നാളികേര ഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്

ഇന്നലെ രംഗറെഡി ജില്ലയിൽ ഭരണകക്ഷിയായ തെലങ്കാന രാഷ്ട്രസമിതി നടത്തിയ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഗവൺമെന്റ് ഇതുവരെ നടത്തിയിട്ടുള്ള വികസനപ്രവർത്തനങ്ങളും അദ്ദേഹം ജനങ്ങൾക്കുമുമ്പിൽ അവതരിപ്പിച്ചു

ഈ വർഷം പാലത്തിന്റെ ഉദ്ഘാടനം നടത്താനാവുമെന്ന് അദ്ദേഹം പറഞ്ഞു

ബ്രഹ്മപുത്ര നദിയുടെ വടക്ക് തെക്ക് തീരങ്ങളില്പ്പെട് ദിബ്രുഗർഹ് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ് ബൊഗിബീൽ പാലം

സോനോവാൾ നോർത്ത് ഫ്രണ്ടിയർ റെയിൽവേ ജനറൽ മാനേജർക്കും ദേശീയ പാതാ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും അനുബന്ധ ഏജൻസികൾക്കും നിർദ്ദേശം നൽകി

ജനങ്ങളെയും ദുരന്ത നിവാരണ രക്ഷാസേനകളെയും ജാഗ്രതയോടെ നിലനിർത്തുന്നതിനാണ് മോക്ഡ്രിൽ പാൽഘാർ ബോർലി രത്ന ഗിരി സിന്ധു ദർഹ് താനെ എന്നിവിടങ്ങളിലാണ് മോക്ഡ്രിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് വിവിധ ഏജൻസികൾ എന്നിവയാണ് മോക്ഡ്രിൽ നടത്തുന്നത്

ജന്മാഷ്ടമി ആഘോഷങ്ങൾക്കായി ഉത്തർപ്രദേശിലെ മധുരയും വ്യന്ദാവനവും ഒരുങ്ങി ഇതോടനുബന്ധിച്ച് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ദഹി ഹണ്ഡി ആചാരം നടക്കും മുംബൈയിൽ ദഹി ഹണ്ഡി ആഘോഷത്തോടനുബന്ധിച്ച് ഗോവിന്ദു സിമൂഹങ്ങൾ മനുഷ്യ പിരമിഡുകൾ ഉണ്ടാക്കി ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന കുടങ്ങൾ ഉടയ്ക്കുന്ന മത്സരങ്ങളിൽ പങ്കെട്ടുക്കുന്നു

ജന്മാഷ്ട്രമി വേളയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപത്യി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു നിഷ്കാമ കർമ്മമെന്ന ആഗോള സന്ദേശമാണ് ശ്രീകൃഷ്ണന്റെ ജീവിതവും പഠിപ്പിക്കലുകളുമെന്ന് ശ്രീ കോവിന്ദ് സന്ദേശത്തിൽ പറഞ്ഞു

ഇന്നലെ മാത്രം പത്ത് പേർ മരിച്ചു

കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് ഗോപി

വിവിധ ജില്ലകളിൽ നിരവധി പേർ ചികിത്സയിലാണ്

കോഴിക്കോട്ടും പാലക്കാട്ടും മൂന്നും മലപ്പുറത്ത് രണ്ടും തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിൽ ഓരോരുത്തരുമാണ് ഇന്നലെ മരിച്ചത് ആരോഗ്യ വകുപ്പിന്റെ പ്രോട്ടോക്കോൾ എല്ലാ ഉദ്യോഗസ്ഥരും പിന്തുടരണമെന്ന് ആരോഗ്യമന്ത്രി കെ

ലോകാരോഗ്യ സംഘടന അടക്കമുള്ള ഏജൻസികൾ കേരളത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്

പ്രതിരോധ്മരുന്ന് നിർബന്ധമായും കഴിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഉപയോഗിക്കണമെന്നും ശ്വൺമെന്റ് നിർദ്ദേശിച്ചു

സ്ത്വൺമെന്റ് ആശുപത്രികളിൽ പ്രത്യേക എലിപ്പനി വാർഡുകളും സജ്ജീകരിച്ചിട്ടുണ്ട്

ഒരു മത്സരം ശേഷിക്കെയാണ് ഇംഗ്ലണ്ടിന്റെ വിജയം

നാറ്റോസഖ്യസേനയുടെ ഹെലികോപ്റ്ററാണ് വടക്കൻ പ്രവശ്യയിലെ ബാൽഖിൽ തകർന്ന് വീണത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു സാങ്കേതിക തകരാറുമൂലം തീപിടിച്ചാണ് അപകടം സംഭവിച്ചതെന്ന് സൈനിക വക്താവ് പറഞ്ഞു

മൊഗാദിഷ്യൂവിലെ ഹൌൽവദാംഗ് ജില്ലയിലുള്ള പ്രാദേശിക് ഗവൺമെന്റ് ഓഫീസ് ലക്ഷ്യമിട്ടാണ് ഭീകരർ ചാവേർ ആക്രമണം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു